ങ്ങ ൽ ശ് ഢ ഢ ഢ ഢ ഢ കാർഷിക വായ്പകളും കടാശ്വാസ നടപടികളും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചർച്ച ചെയ്യും ഗവൺമെന്റ് പ്രഖ്യാപിച്ച കാർഷിക വായ്പാ മൊറ ട്ടോറിയത്തിന് അംഗീകാരം നൽകാനും ജപ്തി നടപടികൾ നിർത്തിവെയ്ക്കാനും വേണ്ടിയാണ് മുഖ്യമന്ത്രി ബാങ്കേഴ്സ് സമി തിയുടെ യോഗം വിളിച്ചത് ജപ്തി നടപടികളെ തുടർന്ന് ഇടുക്കി അടക്കം ജില്ല്കളിൽ കർഷക ആത്മഹത്യകൾ ഉണ്ടായ സാഹചര്യം മുഖ്യമന്ത്രി ബാങ്കുകളെ ബോധ്യപ്പെടുത്തും നേരത്തെ കാർഷിക വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചെങ്കിലും സർഫാസി നിയമം ഉപയോഗിച്ച് പല ബാങ്കുകളും കർഷകർക്കെതിരെ ജപ്തി നടപടികളിലേക്ക് നീങ്ങിയിരുന്നു കർഷകർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് കട്ടപ്പനയിൽ ഏകദിന ഉപവാസം നടത്തും അഞ്ച് ലക്ഷം രൂപയുടെ എല്ലാ് വായ്പകളും പലിശക്കു ടിശ്ശികയും എഴുതിത്തള്ളണമെന്നും പ്രകൃതി ദുരന്തത്തിന് ഇരയാ യവർക്ക് നഷ്ടപരിഹാരം നൽകണ്മെന്നും ആവശ്യപ്പെട്ടാണ് ഉപ വാസം സമരം യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയിലും തമിഴ്നാട്ടിലും ഒട്ടേറെ വികസന് പദ്ധതികൾക്ക് തുടക്കം കുറിക്കും കർണാടക യിലെ കലബുർഗിയിലും തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തുമാണ് വിദ്യാ ഭ്യാസ ആരോഗ്യ വൈദ്യുതി പദ്ധതികൾ ആരംഭിക്കുന്നത് ബെങ്ക ലൂരുവിലെ ആദായ നികുതി അപ്പലേറ്റ് ട്രിബ്യൂണൽ ടെർമിനലും അദ്ദേഹം നാടിന് സമർപ്പിക്കും ആയുഷ്മാൻ ഭാരത് ഗുണഭോക്താ ക്കളുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്യും കാഞ്ചീപുരത്ത് റെയിൽവേ റോഡ് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി ചെന്നൈ എം

ആർ ജാനകി കോളേജിലെ എം ജി രാമചന്ദ്രൻ പ്രതിമ അനാഛാദന കർമവും വീഡിയോ കോൺഫറൻസിലൂടെ നടത്തും

പാക്കിസ്ഥാന്റെ സമുദ്രാതിർത്തിയിൽ ഒരു ഇന്ത്യൻ മുങ്ങിക്കപ്പലും പ്രവേശിച്ചിട്ടില്ലെന്ന് അവർ പറഞ്ഞു

ഇന്ത്യയുടെ തെളിവു കൾ പരിശോധിച്ച് അമേരിക്ക വിശദമായ അന്വേഷണം നടത്തു മെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ ന്യൂഡൽഹിയിൽ വിശ്വാസം പ്രക ടിപ്പിച്ചു അയോധ്യാ ഭൂമി തർക്കകേസ് മധ്യസ്ഥ ശ്രമത്തിന് വിടുന്ന കാര്യ ത്തിൽ സുപ്രീംകോടതി ഇന്ന് തീരുമാനം അറിയിച്ചേക്കും കേസിലെ കക്ഷികളുടെ നിലപാട് അറിഞ്ഞ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കോടതിയുടെ അന്തിമ തീരുമാനം അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് പ്രശ്ന പരിഹാരത്തിന് മധ്യസ്ഥരെ നിയോഗിക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായം തേടിയിരുന്നു

കാസർകോട് ഒഴികെ ലോക്സഭാ മണ്ഡലങ്ങളിൽ സിറ്റിങ് എം

കാസർകോട്ട് പി കരുണാകരന് പകരം ജില്ലാ സെക്രട്ടറി കെ പി സതീഷ്ചന്ദ്രനെ പരി ഗണിച്ചേക്കുമെന്നാണ് സൂചന കോഴിക്കോട്ട് എ പ്രദീപ്കുമാർ എം

എയും ആലപ്പുഴയിൽ എ എം ആരിഫ് എം

എയും മത്സ രിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട് ഇന്നലെ ചേർന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയേറ്റിലാണ് ധാരണ രൂപപ്പെട്ടതെന്ന് അറിയു ന്നു ചാലക്കുടിയിൽ ഇന്നസെന്റിനെ വീണ്ടും പരിഗണിക്കുമെന്നും റിപ്പോർട്ടുണ്ട് ഇന്ന് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾ യോഗം ചേർന്ന് സെക്ര ട്ടറിയേറ്റ് നിർദേശം ചർച്ച ചെയ്യും നാളത്തെ സെക്രട്ടറിയേറ്റ് സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾക്ക് ശേഷം വെള്ളിയാഴ്ച എൽ

എഫ് യോഗത്തിലായിരിക്കും സ്ഥാനാർഥി പട്ടിക അംഗീകരി ക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് രണ്ട് സീറ്റ് നൽകാനാവില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി ഇന്നലെ ആലുവാ യിൽ രാത്രി ചേർന്ന മൂന്നാംവട്ട ചർച്ചയിലാണ് ഒരു സീറ്റ് കൂടി നൽകാനാവില്ലെന്ന് കോൺഗ്രസ് അറിയിച്ചത് ദേശീയ സാഹചര്യം പരിഗണിച്ച് കോൺഗ്രസ് തന്നെ കൂടുതൽ സീറ്റുകളിൽ മത്സരി ക്കണം എന്ന കാര്യം കേരള കോൺഗ്രസിനെ ബോധ്യപ്പെടുത്തിയ തായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ഈ വിഷ യത്തിൽ ഇനി ഉഭയകക്ഷി ചർച്ചകളില്ലെന്നും അദ്ദേഹം അറിയിച്ചു നാളെ ചേരുന്ന കേരള കോൺഗ്രസ് ഉന്നതാധികാര യോഗത്തിന് ശേഷം ഇതുസംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകും

ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റ് വേണമെന്ന നില പാടിൽ പാർട്ടി ഉറച്ചു നിൽക്കുകയാണ് ദേശീയ സാഹചര്യം പരി ഗണിച്ച് തീരുമാനത്തിൽ മാറ്റം വരുത്തണമെന്ന് കോൺഗ്രസ് ആവ ശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പാണക്കാട്ടെത്തി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബിജെപിയുടെ പരി വർത്തൻ യാത്രകൾക്ക് തുടക്കമായി വീണ്ടും വേണം മോദി ഭരണം എന്ന സന്ദേശത്തോടെയാണ് സംസ്ഥാനത്തെ നാല് മേഖലകളി ലായി ജനറൽ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ യാത്രകൾ നട ക്കുന്നത്

ടി രമേശ് നയിക്കുന്ന വടക്കൻ മേഖലാ യാത്ര ഇന്ന് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും ബിജെപിയെ നേരിടാൻ പരസ്പരം സഖ്യമാകാമെന്ന് സിപിഐ എമ്മും കോൺഗ്രസും വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇരുപാർട്ടി കളും കേരളത്തിലും ഒരു മുന്നണിയായി പാർലമെന്റ് തെരഞ്ഞെ ടുപ്പിൽ മത്സരിക്കാൻ തയാറാകണമെന്ന് ബി ജെ പി സംസ്ഥാന ജന റൽ സെക്രട്ടറി എം ടി രമേശ് കാസർകോട് പറഞ്ഞു പെരിയ ഇരട്ട ക്കൊലപാതകത്തിന്റെ പിന്നിൽ ഗൂഢാലോചന പുറത്തുകൊണ്ടു വരണമെന്നും കൊലപാതകങ്ങളുടെ പേരിൽ മുതലക്കണ്ണീരൊലി പ്പിച്ച് വോട്ട് നേടുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും എം ടി രമേശ് കുറ്റപ്പെടുത്തി

സി സി പ്രസിഡന്റ് മൂല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട്ട് അറിയിച്ചു

ആർ

എഫ് ജവാൻ വസന്ത കുമാറിന്റെ വയനാട്ടിലെ വീട് സന്ദർശിക്കും തുടർന്ന് പെരിയയി ലേക്ക് പോകുന്ന രാഹുൽഗാന്ധി വൈകീട്ട് കോഴിക്കോട് കടപ്പു റത്ത് കോൺഗ്രസ് മഹാറാലിയിൽ പങ്കെടുക്കും സംസ്ഥാനത്ത് ഹയർസെക്കൻഡറി വൊക്കേഷണൽ ഹയർസെ ക്കൻഡറി പരീക്ഷകൾ ഇന്ന് തുടങ്ങും

നാഗ്പൂരിലെ മത്സരത്തിൽ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി സെഞ്ചറി നേടി

മറ്റൊരു മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ ഏഴ് വിക്കറ്റിനാണ് ഇന്ത്യ ബി ടീം പരാജയപ്പെടുത്തിയത് സേവനങ്ങൾ കാലതാമസം കൂടാതെ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുന്ന തലത്തിലേക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളെ സജ്ജ മാക്കുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ കൊല്ലത്ത്പറഞ്ഞു കാ ഞ്ഞാവെളി മൃഗാശുപത്രിക്ക് ഐ

അംഗീകാരം സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കൊച്ചി ബ്യൂട്ടിപാർലർ വെടിവെപ്പുകേസിൽ അധോലോക ഗുണ്ടാ ത്തലവൻ രവിപൂജാരിക്കെതിരെ പൊലീസ് കുറ്റപത്രം സമർപ്പിച്ചു കേസിൽ മൂന്നാം പ്രതിയാണ് രവിപൂജാരി കൊച്ചിയിലെ സാമ്പ ത്തിക കുറ്റുകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച മൂന്ന് കോടി രൂപയുടെ ഹാഷിഷ് മാലി യാത്രക്കാരനിൽ നിന്ന് പിടി കൂടി

ഇയാലെ നാർക്കോടിക് വിഭാഗം ചോദ്യം ചെയ്തു വരിക യാണ് കൊച്ചി കോട്ടയം തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് കണ്ടെയ്നർ ബാർജ് സർവീസ് മറ്റന്നാൾ ആരംഭിക്കും ദേശീയ ജലപാത ദ വഴിയാണ് ചരക്കുനീക്കം സാധ്യാമാക്കുന്നത് ജലപാതയിലൂടെ ചരക്കുനീക്കം ആരംഭിക്കുന്നതോടെ കടത്തു ചെലവ് കുറക്കാൻ കഴിയുമെന്ന് തുറ മുഖ ട്രസ്റ്റ് വിലയിരുത്തി കൊച്ചി മെട്രോയുടെ പ്രവർത്തനം മനസ്സിലാക്കാൻ ആറംഗ ലിത്വാ നിയൻ സംഘം കൊച്ചി സന്ദർശിച്ചു കൊച്ചി മെട്രോയ്ക്ക് പുറമെ വാട്ടർ മെട്രോ കൊച്ചി സ്മാർട്ട് മിഷൻ എന്നിവയുടെ നിർമാണ പുരോഗതിയും സംഘം വിലയിരുത്തും നരേന്ദ്രമോദി ഗവൺമെന്റ് ആസൂത്രണ കമ്മിഷൻ പിരിച്ചുവിട്ടത് കോർപ്പറേറ്റുകളെ സഹായിക്കാനാണെന്ന് മുതിർന്ന് കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് കുറ്റപ്പെടുത്തി